പൌരത്വ ഭേദഗതി നിയമം ആരുടേയും പൌരത്വം കവർന്നെടു ക്കാനുള്ളതല്ലെന്നും മറിച്ച് പൌരത്വം നൽകാനുള്ളതാണെന്നും ആവർത്തിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

ജമ്മുകാശ്മീരിലെ പൂൽവാമ ജില്ലയിൽ സുരക്ഷാ സേന രണ്ട് തീവ്രവാദികളെ വധിച്ചു

ട്രാക്കിലും ഫീൽഡിലും റെക്കോർഡുകൾ സൃഷ്ടിച്ച് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ഗുവാഹത്തിയിൽ പുരോഗമിക്കുന്നു

വിവേകാനന്ദ ജയന്തിയോടനുബന്ധിച്ച് പശ്ചിമ ബംഗാളിലെ ബേലൂർമഠത്തിൽ സംഘടിപ്പിച്ചു പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പൌരത്വ ്നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ടുള്ള തെറ്റിദ്ധാരണകൾ മാറ്റുന്നതിന് യുവാക്കൾ മുന്നോട്ട് വരണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു രാജ്യത്തിന്റെ വടക്ക് കിഴക്കൻ മേഖലകളിൽ നിയമം പ്രതികൂലമായ പ്രതിഫലനങ്ങൾ ഒന്നും ഉണ്ടാക്കിയിട്ടില്ലെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു കൂടുതൽ വിഭാഗങ്ങളിൽ ഉൾപ്പെടുന്നവർക്ക് പൌരത്വം ലഭിക്കാൻ നിയമഭേദഗതി ഉപകരിക്കുമെന്ന് അദ്ദേഹം വൃക്തമാക്കി നവഭാരതമെന്ന സ്വാമി വിവേകാനന്ദന്റെ സ്വപ്നം സാക്ഷാത്ക്കരിക്കുന്നതിന് യുവാക്കൾ മുന്നോട്ട് വരണമെന്നും പ്രധാനമന്ത്രി ആവശ്ല്യപ്പെട്ടു

വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സ്ഥാപിക്കുന്ന ഫലകവും പ്രധാനമന്ത്രി അനാഛാദനം ചെയ്യും രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി ഇന്നലെയാണ് പ്രധാനമന്ത്രി കൊൽക്കത്തയിൽ എത്തിയത്

ഇന്ത്യൻ ആധ്യാത്മികതയും വേദാന്തവും യോഗയും ലോകത്തിന് പരിചയപ്പെടുത്തിയത് ഇന്ത്യയുടെ സമുന്നതനായ ആത്മീയ നേതാവായിരുന്ന സ്വാമി വിവേകാനന്ദനാണ്

ശിഷ്യനായിരുന്ന വിവേകാനന്ദൻ ശ്രീരാമകൃഷ്ണ മിഷന് തുടക്കമിട്ടു

ഇന്ത്യൻ സംസ്കാരത്തിന് വിസ്മരിക്കാനാവാത്ത സംഭാവനകൾ നൽകിയ ആത്മീയ നേതാവായിരുന്നു വിവേകാനന്ദനെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുസ്മരിച്ചു വിവേകാന്ദന്റെ ആശയങ്ങൾക്ക് ഇന്നും വലിയ പ്രാധാനൃമാണുള്ളതെന്ന് ഇന്നലെ ഏകാൽക്കത്തയിൽ നടന്ന ചടങ്ങിൽ ശ്രീ നരേന്ദ്രമോദി പ്പിറ്റ്ഞ്ഞു

ഉത്തര ക്കൊൽക്ക്തയിലെ വിവേകാനന്ദന്റെ ജന്മഗൃഹത്തിൽ പ്രത്യേക പരിപ്പാടികൾ നടക്കുന്നുണ്ട്

ട്രാലിലെ ഗുൽഷൻ പോറ മേഖലയിൽ ഭീകരരുടെ സാന്നിധ്യമുണ്ടെന്ന വിവരത്തെ തുടർന്ന് നടത്തിയ തിരച്ചിലിനിടെയാണ് ഏറ്റുമുട്ടലുണ്ടായതെന്ന് സൈനിക വൃത്തങ്ങൾ വൃക്തമാക്കി

ഇയാൾക്കായി തെരച്ചിൽ തുടരുന്നു

ചെറുകിട ഉൽപ്പാദന മേഖലകളിലെ വളർച്ചയ്ക്ക് ഇത് സഹായക്മൂമാകുമെന്ന് ജമ്മുകാശ്മീർ ഗവൺമെന്റ് പുറത്തിറക്കിയ വാർത്താക്ക്റ്റി്പ്പിൽ പറയുന്നു ഇതു സംബന്ധിച്ച കേന്ദ്രത്തിന്റെ നിർദ്ദേശത്ത് തുടർന്നാണ് നടപടി

രണ്ട് മണിക്ക് ഗോൾഡൻ കായലോരം നിയന്ത്രിത സ്ഫോടനത്തിലൂടെ തകർക്കും

തീരദേശ നിയമങ്ങൾ ലംഘിച്ച് നിർമ്മിച്ച രണ്ട് ഫ്ളാറ്റ് സമുച്ചയങ്ങൾ ഇന്നലെ പൊളിച്ചിരുന്നു സുപ്രീം കോടതി വിധിയെ തുടർന്നാണ് നടപടി

നാളത്തെ ഔദ്യോഗിക പരിപാടികൾ ഒഴിവാക്കിയതായും ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു

ഇതിന്റെ ഭാഗമായി ഇന്നലെ ലക്ഷ്മി നഗർ നിയോജക മണ്ഡലത്തിൽ വോട്ടിംഗ് യന്ത്രത്തെക്കുറിച്ചും വി വി പാറ്റിനെക്കുറിച്ചും സമ്മതിദായകരെ ബോധവത്ക്കരിക്കാനായി തെരുവു നാടകങ്ങളും സംഘടിപ്പിച്ചു

യുക്രേനിയൻ വിമാനത്തെ അബദ്ധത്തിൽ വ്വെടീവച്ചിട്ട്താണെന്ന കാര്യം ഇറാൻ കഴിഞ്ഞ ദിവസം മാത്രമാണ് സ്ഥിർടീകരിച്ചത് സാങ്കേതിക തകരാറാണ് വിമാനം തകരാൻ കാരണമായതെന്നായിരുന്നു ഇറാന്റെ ആദ്യത്തെ വാദം ഇറാനിലെ പ്രതിഷ്യേധിങ്ങള് യു

ട്രാക്കിലും ഫീൽഡിലും പുതിയ റെക്കോർഡുകൾ സൃഷ്ടിച്ചാണ് ഗെയിംസ് മുന്നേറുന്നത്

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന്